മഴക്കെടുതിയിൽ മരണം എട്ടായി മലപ്പുറത്ത് ഇന്ന് റെഡ് അലർട്ട്

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും വ്യാപക നാശം

ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിതീവ്രമഴക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂര് കാസർകോട് പാലക്കാട് തൃശൂർഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് രുമ മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത്തി പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും നൽകുന്ന സുരക്ഷാനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേയ്ക്ക് മാറണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു രുര ഇടുക്കി ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി

താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ചെറുപാലങ്ങൾ മുങ്ങി

ചാലിയാർ കരകവിഞ്ഞ് നിലമ്പൂർ ടൌണിൽ ഉൾപ്പെടെ വെള്ളം കയറി പൊന്നാനി താലൂക്കിൽ കടൽക്ഷോഭം രൂക്ഷം

രുമ കോഴിക്കോട് വിലങ്ങാട് ഉൾവനത്തിൽ ഉരുൾപൊട്ടി വിലങ്ങാട് പാലത്തിൽ വെള്ളം കയറിയെങ്കിലും ആളപായമില്ല ദേദ ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രളയഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപാർപ്പിച്ചു തുടങ്ങി

പമ്പാനദിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രുര കല്ലാർകുടി പാബ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതിനാലും ഭൂതത്താൻ കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതിനാലും പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പാതാളം റഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തി രുര സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് വ്യാപനത്തിൽ വർധന

കോഴിക്കോട് കാസർകോട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണം നൂറിലേറെയാണ്

അച്ചാറ്റുകുളം സ്വദേശി വാഴത്തറ വീട്ടിൽ പുരുഷോത്തമനും പള്ളുരുത്തി സ്വദേശി കളത്തിൽ വീട്ടിൽ റാഫിയുമാണ് മരിച്ചത് പുരുഷോത്തമന് കടുത്ത വൃക്കരോഗവും പ്രമേഹവും രക്തസമ്മർദ്ദവും റാഫിക്ക് ശ്വാസകോശാർബുദവും ന്യൂമോണിയയും ഉണ്ടായിരുന്നു

തിങ്കളാഴ്ച മുതൽ വിഴിഞ്ഞം തുറമുഖത്ത് മത്സ്യബന്ധനവും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്താം എന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ചു മാത്രമേ മത്സ്യതൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളൂവെന്നും നിർദേശിച്ചിട്ടുണ്ട് ചാല മാർക്കറ്റിലെ കടകൾക്ക് കർശന നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാം രുഭ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽപേർക്ക് രോഗം സ്ഥിരീകരിച്ച തൂണേരിയിൽ എല്ലാവരുടേയും രോഗം ഭേദമായി വാണിമേലും രോഗ വ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് ക്ലസ്റ്ററുകളിൽ നിന്നും ഒഴിവാക്കി രുമ കൊല്ലം ജില്ലയിലെ കണ്ടയിൻമെന്റ് സോണുകളിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി ഫാക്ടറികൾക്ക് ഇന്നു മുതൽ നാലു ദിവസം കൊവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകി

രുമ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ വലിയ മാർക്കറ്റ് പൂർണമായും അടച്ചിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു രുമ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നഗരസഭാ പ്രദേശങ്ങൾ പൂർണമായി അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു

ഉന്നത വിദ്യാഭ്യാസത്തിലെ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക ഭാവിയിലെ വിദ്യാഭ്യാസം ഗുണകരമായ ഗവേഷണം സാങ്കേതിക വിദ്യകളുടെ സന്തുലിത ഉപയോഗം തുടങ്ങി ഒട്ടേറെ സെഷനുകൾ കോൺക്ലേവിൽ ഉണ്ടാകും കേന്ദ്രവിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ വിദ്യാഭ്യാസ സഹമന്ത്രി സഞ്ചയ് ദോത്രെ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും സർവ്വകലാശാല വൈസ് ചാൻസലർമാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർമാർ കോളേജ് പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുക്കും രുമ ഇന്ന് ദേശീയ ദൈത്തറി ദിനം കൈത്തറി നെയ്ത്തു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നെയ്ത്തുകാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ദിനാചരണം

കേന്ദ്ര ടെക്സ്റ്റൈയിൽസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വെർച്വൽ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥിയാകും രുമ കൈത്തറി കരകൌശല വസ്തുക്കൾ ഇന്ത്യയുടെ നൂറുകണക്കിന് വർഷത്തെ മഹത്തായ ചരിത്രത്തെ ഉൾക്കൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൈത്തറി നെയ്ത്തു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൈത്തറി ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ആകാശവാണിയുടെ മൻ കീ ബാത് പരിപാടിയിൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ദേദ കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ സ്ഥാനം രാജി വെച്ച ഗിരീഷ് ചന്ദ്ര മുർമുവിനെ പുതിയ കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലായി നിയമിച്ചു രാജീവ് മെഹിർഷി ഇന്ന് കാലാവധി പൂർത്തിയാക്കുന്ന ഒഴിവിലാണ് നിയമനം

രുമ ട്രോളിങ് നിരോധനത്തിന് ശേഷം പുനരാരംഭിക്കുന്ന മത്സ്യബന്ധനത്തിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് തൊഴിലാളികളെ സഹായിക്കാനാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു രദേ നെഹ്റു ട്രോഫി ജലമേള മാറ്റിവെച്ചതായി ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു എല്ലാ വർഷം ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച നടത്തുന്ന നെഹ്റു ട്രോഫി ജലമേള കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് മാറ്റിവെക്കുന്നതെന്ന് കലക്ടർ പറഞ്ഞു രുമ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യമുന്നയിച്ച് ബി

പി ദേശീയ നിർവാഹകസമിതിയംഗം പി കെ കൃഷ്ണദാസ് ഇന്ന് രാവിലെ കോഴിക്കോട് ബി

പി ജില്ലാ കമ്മറ്റി ഓഫിസിൽ ഉപവാസസമരം നടത്തും വെർച്വൽ സംവിധാനത്തിലൂടെ ബി

വൈകുന്നേരം നാലിന് നടക്കുന്ന സമര പ്രഖ്യാപന വെർച്വൽ റാലിയുടെ ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി വി